ഉയർത്തിയതിനെതിരെയുള്ള പ്രതിഷേധം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സംസ്ഥാന മുഖ്യമുന്ത്രിമാരുമായി നേരിട്ട് സംസാരിക്കും

ഉടമകൾ നഗരസഭയ്ക്ക് ് മറു്പടി നൽകി

കാലാതിവർത്തിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോഡിട്ട് കൊച്ചി മെട്രോ

പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് മികച്ച പ്രതികരണം

നിയമ ഭേദഗതിയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയാണ് പ്രധാനലക്ഷ്യം സംസ്ഥാനങ്ങളുടെ എതിർപ്പുകൾ നീക്കാനുള്ള തീരുമാനങ്ങൾ മുഖ്യമന്ത്രിമാരുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൈക്കൊള്ളുമെന്ന് ഗഡ്കരി അറിയിച്ചു

ഫ്ളാറ്റ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് തങ്ങൾക്ക് നൽകിയ കത്ത് നിയമാനുസൃതമല്ലെന്ന് ഉടമകൾ പറഞ്ഞു

ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനെതിരെ താമസക്കാർ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും നിവേദനം നൽകുന്നുണ്ട്

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരിസ്ഥിതി ആഘാതം തടയാൻ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പിലാക്കുമ്പോൾ മരടിലെ ഫ്ളാറ്റുകളിൽ കഴിയുന്ന കുടുംബങ്ങളുടെ കണ്ണീര് കാണാതെ പോകരുതെന്നും അദ്ദേഹം പറഞ്ഞു

ശ്രീധരൻപിള്ള

ഇത്രയും ആളുക്ക്ള്ള് പെരുവഴിയിലിറക്കിവിടുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു

കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിന് സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനായി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ സന്ദേശ പ്രചരണ ബൈക്ക് റാലി കൂത്തു പറമ്പ് നിർമ്മലഗിരി കോളേജിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് ഗവൺമെന്റ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കമ്മീഷൻ ചെയർമാൻ പി

ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സകുളിലും കോട്ടക്കൽ വൈകീട്ട് ചങ്കു വെട്ടി രാജാസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിസ്കൂളിലും റാലിക്ക് സ്വീകരണം നൽകും

കേസിൽ നിഷ്പക്ഷ അന്വേഷണം നടക്കട്ടെയെന്ന് ജസ്റ്റീസ് എൽ

ഇതേത്തുടർന്നു എഫ്ഐആർ റദ്ദാക്കണമെന്ന ഹർജി യുഎൻഎ വൈസ് പ്രസിഡൻറ് പിൻവലിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു

ശ്രീനാരായണ ജയന്തിയോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രകളും അന്നദാനവുമടക്കമുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു

സമൂഹത്തിൽ നവോഥാനത്തിന്റെ വെളിച്ചും വീശിയ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അനീതിക്കുമെതിരായ പോരാട്ടത്തിന് എന്നുമെന്നും വഴിവിളക്കാണെന്നും അദ്ദേഹം ഷേസ്ബുക്കിൽ കുറിച്ചു മനുഷ്യൻറെ ജാതി മനുഷൃത്ഥമാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി തുടങ്ങിയ ഗുരുവിൻറെ സ്ട്രോട്ട് മലയാളിയുടെ മനസിൽ സമത്വചിന്ത വളർത്തിയതായി മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു

എണ്ണത്തിൽ കുറവെങ്കിലും വീര്യവും ശൌര്യവും ഒട്ടും കുറയാതെ ആറ് ദേശങ്ങളുടെ പുലികൾ ഇക്കുറി കളിക്കാൻ ഇറങ്ങും

ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഒ

സ്വർണ വില വീണ്ടും കുറഞ്ഞു